ബിഹാറിൽ വീണ്ടും മുഖ്യൂമന്ത്രിയായി നിതീഷ് കുമാർ വ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും

വിഖ്യാത ബംഗാളി നടൻ സൌമിത്ര ചാറ്റർജി അന്തരിച്ചു

ശബരിമല ക്ഷേത്ര നട തുറന്നു

എം ആർ അറിയിച്ചു

ഒന്നര കോടിയിലധികം ആളുകളാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്

നിയുക്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് തലസ്ഥാനമായ പറ്റ്നയിൽ നടക്കും

ഇന്ന് ചേർന്ന എൻ

എ ണിയുമസ്ഭാ കക്ഷിയോഗത്തിലാണ് ശ്രീ

അദ്ദേഹത്തെ കക്ഷിന്റേത്പാപായി തെരഞ്ഞെടുത്തതായി എൻ

എ യോഗത്തിൽ പങ്കെടുത്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങും അറിയിച്ചു

നിതീഷ് കുമാർ എൻ

എ നേതാക്കൾക്കൊപ്പം രാജ്ഭവനിലെത്തി ഗവർണർ ഭംഗു ചൌഹാനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരണത്തിനായി അവകാശവാദം ഉന്നയിച്ചു ഘടകകക്ഷിയിലെ നിയുക്ത എം എൽ

ഇത് അംഗീകരിച്ച ഗവർണർ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുകയായിരുന്നു

യു നിയമസഭാകക്ഷി യോഗത്തിലും അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു ശ്രീ സുശീൽ കുമാർ മോദിയെ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഗ്രാറ്റുവിറ്റി പ്രസവ സംബന്ധമായ ആനൂകൂലൃങ്ങൾ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യു് സുരക്ഷ തുടങ്ങിയവ സംബന്ധിച്ച് വൃവസ്ഥകൾ ഉൾക്കൊള്ളിച്ചാണ് കരട് നിയമം തയ്യാറാക്കിയിട്ടുള്ളത് ആധാർ അധിഷ്ഠിത രജിസ്ട്രേഷൻ നിശ്ചിതകാല ജോലിയുള്ള ഒരു ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവയും കരട് ചട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്

റേയുടെ സിനിമകളിലെ അനശ്വര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചാറ്റർജി ബംഗാളി സാംസ്കാരിക രംഗത്തെ കരുത്തുറ്റ പ്രതിഭകളിൽ ഒരാളായിരുന്നു പദ്മഭൂഷണും ഉയർന്ന ഫ്രഞ്ച് സിവിലിയൻ അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്ക്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സൌമിത്ര ചാറ്റർജിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വാർത്താ വിതരണപ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

വെർച്ചൽ ക്യൂ വഴി ബുക്ക് ചെയ്തു വരുന്നവർക്കു മാത്രമേ പ്രവേശനം അനുവദിക്കൂ

പുതിയ താമസസ്ഥലത്ത് പേരു ചേർക്കുന്നതിനും പട്ടികയിൽ നിലവിലുള്ള വോട്ടർമാരുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനും അവസരമുണ്ടായിരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ ആദിവാസികളെ അണിനിരത്തിയ പ്രമുഖ നേതാവാണ് ബിർസാ മുണ്ട അദ്ദേഹം പകർന്നു നൽകിയ ദൃഢനിശ്ചയവുംനിർഭയത്വവുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആദിവാസികൾക്ക് പ്രചോദനമായതെന്നും ഉപരാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു സംസ്ഥാന രൂപീകരണ ദിനമായ ഇന്ന് ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് ശ്രീ നായിഡു ആശംസകൾ നേർന്നു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർധൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ മുഖ്യമന്ത്രി അരവിന്ദ്കെജ്രിവാൾ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

മഹാരാഷ്ട്രയിലെ ലോണാർ തടാകവും ഉത്തർ പ്രദേശിലെ സൂർ സരോവറുമാണ് രാംസർ പട്ടികയിൽ ഇടംനേടിയത്

തൂണ്ണീർത്തടങ്ങൾ പ്രകൃതിദത്ത ജല ശുദ്ധീകർണ് സ്ംവിധാനമാണെന്നും സവിശേഷ ആവാസവൃവ്സ്ഥ്കൾ ആണെന്നും ശ്രീ ജാവദേക്കർ ട്വിറ്ററിൽ കുറിച്ചു

തന്ത്രപരമായ വിഷയങ്ങളിൽ അഭിപ്രായ രൂപീകരണം നടത്താനുള്ള വേദിയാണ് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയെന്ന് അദ്ദേഹം പറഞ്ഞു

ശ്രീനഗറിലെ ബി ബി കന്റോൺമെന്റ് ലഫ്റ്റനന്റ് ജനറൽ ബി

പ്രകോപനമില്ലാതെ വെടിയുതിർത്ത പാക്കിസ്ഥാൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഏറ്റവും അടുത്ത മിലിറ്ററി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുപ്വാര ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ അന്തരിച്ച സബ് ഇൻസ്പെക്ടർ രാകേഷ് ദ്രദോബലിന് ബി എസ് എഫ് ഇന്ന് ആദരാഞ്ജലിക്കൾ അർപ്പിച്ചു

ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാണ് പരീക്ഷണം നടത്തുന്നത്